രാജ്യത്തെ വഞ്ചിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷം ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കരുതെന്നും ശ്രീ

രാജ്യത്തെ പൊതുമേഖ്ലാ് ബ്രാങ്കുകളുടെ സി ഇ

ന്യൂസിലന്റിനെതിരായ മൂന്നാം ഏകദിനം ഇന്ന്

രാജ്യത്തിന്റെ വികസനത്തിൽ തടസ്സം നിൽക്കരുതെന്നും ശ്രീ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പ്രതിപക്ഷം യാതൊരു ബഹുമാനവും നൽകുന്നില്ല ആശയപരമായി പാപ്പരത്തം നേരിടുന്ന പ്രതിപക്ഷത്തിന് വികസന കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടുമില്ലെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ശബരിമല വിഷയം സംസ്ഥാന ഗവൺമെന്റ് നിരുത്തരവാദപരമായി ആണ് കൈകാര്യം ചെയ്തതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വലിയ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവമോർച്ചയുടെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിന്റെ മഹത്തായ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്

എഫ് ഡൽഹിയിലും കേരളത്തിലും വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത് പ്രതിപക്ഷത്തിന് ആശയ പാപ്പരത്തം ബ്രാധിച്ചിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ദേശീയ ജനാധിപത്യ ഗവൺമെന്റ് ഭരണനിർവ്വഹണ സംവിധാനത്തിൽ തന്നെ മാറ്റം വരുത്തിയെന്നും പ്രക്ടാന്മുന്ത്രി പറഞ്ഞു

സി എല്ലിന്റെ സംയോജിത റിഫൈനറി വികസന സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു പെട്രോ കെമിക്കൽ കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

പദ്ധതി യാഥാർത്ഥ്യമായതോടെ കൂടുതൽ പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾ കൊച്ചിയിലെത്തും കേരളത്തിന്റെ പെട്രോ കെമിക്കൽ പാർക്ക് ഇതിന് വേഗം കൂട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ

സി എല്ലിന് എല്ലാ പിന്തുണയും കേരളം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

പൊതുമേഖലാ സ്ഥാപനങ്ങള ശക്തിപ്പെടുത്തണം എന്ന നയപരമായ സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി വൃക്തമാക്കി ഇന്ത്യയെ പെട്രോ കെമിക്കൽ ഹബ്ബ് ആക്കി മാറ്റാനുള്ള പ്രവർത്തന്നുങ്ങളാണ് നാലര വർഷമായി നടന്നുവരുന്നതെന്ന് കേന്ദ്ര പെട്രോളിയം മൃത്തി പ്പർമേന്ദ്ര പ്രധാൻ അറിയിച്ചു ഗവർണർ ജസ്റ്റിസ് പി

മാർ എം

എ ്മൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബിക്കാനീറിൽ മൂന്നും നാഗൌറിൽ ഒന്നും വീതം പദ്ധതികളാണ് ആരംഭിക്കുന്നത്

ബാങ്കിംഗ് മേഖലയുടെ നിലവിട്ടുള്ള സ്ഥിതിയും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളുക് യോഗം ചർച്ച ചെയ്യും

ചെറുകിട്ട് ഇടത്തരം വൃവസായ മേഖലയ്ക്കും കാർഷിക ചില്ലറ വിൽപന മേഖലകളിലുമുള്ള വായ്പാ പദ്ധതികളും യോഗം വിലയിരുത്തും

വെങ്കയ്യാ നായിഡു സ്വാതന്ത്ര്യ സമര രംഗത്തെ ധീരപോരാളികളുടെ ത്യാഗത്തിനും നിസ്തുല സേവനത്തിനും വിദ്യാഭ്യാസ പദ്ധതിയിൽ പ്രാധാന്യം നൽകണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിന്റെ ദേവാലയങ്ങളായി മാറണം വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത കാരൃങ്ങൾക്ക് വിദ്യാലയങ്ങൾ വേദിയാകരുതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു അറിവും വിജ്ഞാനവും ധാർമിക മൂലൃങ്ങളും കൈമുതലാക്കിയാവണം വിദ്യാർത്ഥികൾ പുറത്തിറങ്ങേണ്ടതെന്ന് ശ്രീ നായിഡു പറഞ്ഞു ന്യൂഡൽഹിയിൽ പന്നാലാൽ ഗിരിധർലാൽ ദയാനന്ദ് ആംഗ്ലോ വേദിക് കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി

എ ിച്ചായിരുന്ന ഹരിചന്ദ് മിദ്ധയുടെ മരണത്തെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ്

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പ്രമാണിച്ച് നാളെ സഭ ചേരില്ല

വാഹന പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

എം എ

ഇവർക്ക് നേരത്തെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ നൽകിയിരുന്നു

എ

നാളെയാണ് പരിപാടി എന്നാൽ പ്രദർശനം നിർബന്ധമല്ലെന്ന് സർക്കുലറിൽ ഗവൺമെന്റ് സ്കൂളുകളെ അറിയിച്ചിട്ടുണ്ട് ആശയ വിനിമയം നടത്തുന്നതോടൊപ്പം സംശയ നിവാരണത്തിനും പരിപാടി അവസരം നൽകുന്നുണ്ടെന്ന് മഹാരാഷ്ട്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു

മൂന്നാം ഏകദിനവും ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വ ന്തമാക്കാം

ഫൈനലിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് റഫേൽ നദാലിനെ കീഴടക്കിയാണ് സെർബിയൻ താരത്തിന്റെ കിരീട നേട്ടം

ജോക്കോവിച്ചിന്റെ ഏഴാം ഓസ്ട്രേലിയ്ക്ക്ൻ ഓപ്പൺ കിരീടമാണിത് കഴിഞ്ഞവർഷം വിംബിൾഡണും യു എസ്പ് ഓപ്പണും ജോക്കോവിച്ച് നേടിയിരുന്നു

മുംബൈയിലെ താനെ ജില്ലയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്

ബുധനാഴ്ചയാണ് യോഗം യോഗത്തിൽ ലോകസഭാ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുക

അയോദ്ധ്യ കേസ് പരിഗണിക്കുന്ന സുപ്രീംകോടതി ബഞ്ചിലെ ജസ്റ്റിസ് എസ് എ ബോബ്ഡെ യുടെ അസാന്നിദ്ധ്യമാണ് കേൾക്കുന്ന തീയതി കേസ് നീട്ടിവയ്ക്കാൻ കാരണം

ചിത്രങ്ങളും ശില്പങ്ങളും ഷോളുകളും ജാക്കറ്റുകളുമുൾപ്പെടെ വിലയേറിയ അനേകം ഉപഹാരങ്ങൾ ലേലത്തിനായി വച്ചിട്ടുണ്ട് ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗാ പദ്ധതിയ്ക്കായി നൽകുമെന്ന് കേന്ദ്ര സാസ്കാരിക മന്ത്രി ഡോ മഹേഷ് മഹേഷ് ശർമ്മ ആകാശവാണിയോട് പറഞ്ഞു